വാക്സിനേഷൻ നടക്കുന്ന രാജ്യമായി മാറി ഇന്ത്യ

സമ്പൂർണമാകാൻ ഉപ്പാതു്ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ട് പ്രധാന്മ്ന്ത്രി നരേന്ദ്രമോദി

അഞ്ചാംഘട്ടത്തിലേയ്ക്കുള്ള പ്രചാരണം ഊൌർജ്ജിതം

ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം

ടീക്ക ഉത്സവിലൂടെ രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ വാക്സിൻ യജ്ഞത്തിന്റെ ഭാഗമാവുകയാണ്

കൊറോണയ്ക്ക് എതിരെയുള്ള രണ്ടാം മഹായുദ്ധമായാണ് ടീക്ക ഉത്സവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെയുടെ ജന്മവാർഷികമായ ഇന്ന് ആരംഭിച്ച പ്രത്യേക കോവീഡ് വാക്സിനേഷൻ യജ്ഞത്തിന് രാജ്യവ്യാപകമായി പ്രമികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തെലങ്കാനയിൽ കൃതി കേന്ദ്രങ്ങളാണ് വാക്സിൻ പ്രെയജ്ഞത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നത്

ഉത്തർപ്രദേശിലും മികച്ച പ്രതികരണമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നത്

മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ടീക്ക ഉത്സവത്തിന്റെ ഭാഗമായുള്ള വാക്സിൻ യജ്ഞത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്

വിശദാംശങ്ങളുമായി അമൃത വൈശാഖ് വോയ്സ് വാക്സിൻ എടുക്കുന്നതിന്റെ ഭാഗമായി ഓരോ പൌരനും പ്രധാനപ്പെട്ട നാല് തത്വങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

ഇന്ത്യയെ പോലെ ജനസംഖ്യ കൂടിയ രാജ്യത്ത് ഓരോ പൌരനും വാക്സിനേഷൻ യജ്ഞം ഏറ്റെടുത്താൽ മാത്രമെ വിജയിക്കാൻ ആകൂവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വാക്സിൻ യജ്ഞത്തിന്റെ നാല് ദിവസങ്ങൾ വ്യക്തിഗതമായും സാമൂഹികവുമായ കടമകൾ പാലിച്ച് കോവിഡ് നിർമ്മാർജ്ജനത്തിന് കൂട്ടായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

ഇന്റ് ാട് പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്

സാമൂഹൃ രാഷ്ട്രീയ കായിക വിനോദ സാംസ്കാരിക വിദ്യാഭ്യാസം സംബന്ധിച്ച ഒത്തുകൂടലിനാണ് നിയന്ത്രണം ഉള്ളത്

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വാർത്താ വിതരണ്ണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ എന്നിവരാണ് കൃഷ്ട്ടേഹത്തിന് ആദരവ് അർപ്പിച്ചത് മഹാനായ സാമൂഹൃദ്യൂർപ്പതിഷ്ക്കർത്താവ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് മികച്ച സംഭൂവീൻ നൽകിയ വൃക്തി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൂടാതെ തതചിന്തകനും മനുഷ്യ സ്നേഹിയുമായിരുന്നു ആദ്ദേഹമെന്ന് അവർ പറഞ്ഞു

കൂടുതൽ വിശദാംശങ്ങളിലേയ്ക്ക് വോയിസ് നാലാംഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമസംഭവ ങ്ങളാണ് പശ്ചിമബംഗാളിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളു ത്തിയത് സിതാൽകുച്ചി വെടിവെയ്പ്പിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രിയും ടി

നേതാവുമായ മമതാ ബാനർജി വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൂടിക്കാഴ്ച നടത്തി

തിരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കേന്ദ്രസേനയെ ഘെരോവോ ചെയ്യാൻ പാർട്ടി അണികൾക്ക് മമതാ ബാനർജി നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് ബി ജെ

ബംഗാളിലെ ജനങ്ങളോട് അവർ മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു എന്നാൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കേന്ദ്രസേനയ്ക്ക് കഴിഞ്ഞില്ലെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്

വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം ബംഗാളിൽ എത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിത മാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹാറ പ്രദേശത്ത് നടന്ന രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട തീവ്രവാദികൾ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും വെടികോപ്പുകളും സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം മുതൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്

ആന്റിലിയ ബോംബ് ഭീഷണി മൻസൂഖ് ഹിരൺ മരണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് എൻ ഐ

അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടറായ സച്ചിൻ വെയ്സ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിരുന്നു ഇരുവരും മുംബൈ പോലീസിന്റെ ക്രൈംഗ് ഇന്റലിജൻസ് യൂണിറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു

ചെന്നൈ എം

ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ചെന്നൈയെ പരാജയപ്പെടുത്തിയിരുന്നു